ഇന്ത്യയുടെ ബജ്രംഗ് പുനിയയ്ക്ക് വെള്ളി മെഡൽ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയിൽ ഒരാൾ വിട്ടുനിന്നിരുന്നു

ദീപാവലി ഉത്സവ കാലത്ത് പടക്കം പൊട്ടിക്കാനുള്ള സമയപ്പത്ത്ധി രാത്രി എട്ട് മുതൽ പത്തുവരെ കോടതി നിജപ്പെടുത്തി ഈ കൊമേഴ്സ് വെബ്സൈറ്റ് മുഖേന അനുവദനീയമായ അളവിലധികം പടക്കം വിപണനം നടത്തുന്നതും പരമോന്നത കോടതി വിലക്കി

കരിമരുന്ന് സാമഗ്രികൾക്ക് മാത്രമെ വിപണന അനുമതി നൽകാനാവൂ എന്ന് കോടതി വൃക്തമാക്കി ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിൽ സംയുക്ത ആഘോഷ്മ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് രാജ്യത്തൊട്ടാകെ പടക്കങ്ങളുടെ നിർമാണവും വിപണനവും നിരോധിക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് പരമോന്നത കോടതിയുടെ വിധി

ദക്ഷിണ കാശ്മീരിൽ ജനങ്ങൾ കൊല്ലപ്പെട്ടതുമായുണ്ടായ സംഭവ വികാസങ്ങളുടെ നിജസ്ഥിതിയും കേന്ദ്രമന്ത്രി ആരായും അടുത്തിടെ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അദ്ദേഹം വിലയിരുത്തും കശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഞായറാഴ്ചയുണ്ടായ ആക്രമണത്തിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടതോടെ സംസ്ഥാനത്തെ സുരക്ഷാസ്ഥിതി ആശങ്കാജനകമായിരുന്നു

കശ്മീരിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ നടത്തിപ്പ് കേന്ദ്രമന്ത്രി വിലയിരുത്തും ശ്രീനഗർ ബന്ദിപ്പോറ് കുപ്വാര ജില്ലകളിലെ വിദ്യാഭ്യാസ്ഥാപനങ്ങളുടെ പ്രവർത്തനം സസ്പെന്റ് ചെയ്യാൻ അധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട്

വോയിസ് തീവ്രവാദത്തെ അനുകൂലിക്കുകയും മഹത്വൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണത ഇസ്ലാമാബാദ് അവസാനിപ്പിക്കണം പാക്കിസ്ഥാൻ പ്രധാനമന്ത്രി കശ്മീരിനെക്കുറിച്ച് നടത്തിയ്യ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നും വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ കാണിക്കുന്ന താൽപ്പര്യം പാക്കിസ്ഥാനിൽ നിന്ന് തീവ്രവാദ ശക്തികളെ ഉൽമൂലനം ചെയ്യുന്നതിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ രവീഷ്കുമാർ പാക്കിസ്ഥാനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമായി ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നതായി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംഭവത്തിൽ നാലാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശത്ത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിലാണ് കേന്ദ്രമന്ത്രി

റാവത്തിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ഹൈദരാബാദിലെത്തി ഇന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും എസ്

ജെ പി കോൺഗ്രസ് ബി

ഡി പി ടി ആർ

ആദായനികുതി എക്സൈസ് ഗതാഗത വിഭാഗങ്ങളുമായും സംഘം ചർച്ചകൾ നടത്തും

സൂക്ഷ്മ പ്രിശോധന നാളെ നടക്കും

കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

ആഗോളതലത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ചോദ്യം ഉയർന്നുവരുന്നത് യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്രൃ വ്യാപാര ഒപ്പുവക്കുന്നത് വേഗത്തിലാക്കാനുള്ള കരാർ നടപടികൾ പുരോഗമിക്കുന്നതായും വാണിജ്യ സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ട്ടർക്ക് പ്രസിഡന്റിന്റെ വക്താവ് ഇബ്രാഹിം കലിൻ ഇന്നലെ അങ്കാരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാരൃം വൃക്തമാക്കിയത്

അതേസമയം ഇസ്താംബൂളിലെ സൌദി കോൺസുലേറ്റിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാർ കാറിന് ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റാണ് ഉള്ളതെന്ന് ടർക്കിയിലെ ഔദ്യോഗികാ വാർത്താഏജൻസി അറിയിച്ചു

മധ്യനിര ആണവായുധ കരാറിൽ നിന്ന് പിന്തിരിയാനുള്ള അമേരിക്കയുടെ ആവശ്യത്തിൽ വൃക്തത കൈവരിക്കാൻ ഇന്നത്തെ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മോസ്കോയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അഞ്ച് മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്ക റഷ്യ ഉഭയകക്ഷി ബന്ധം ആഗോള സുരക്ഷ നിരായുധീകരണം ആയുധ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു റഷ്യൻ വിദേശകാരൃമന്ത്രി സെർജി ലാവ്റോവിനെയും ബോൾട്ടൺ ഇന്നലെ കണ്ട് ചർച്ച നടത്തിയിരുന്നു

ഐഎൻഎഫ് കരാർ വീ്ഷയത്തിൽ അമേരിക്കയുടെ നിലപാട് യു എൻ സെക്രട്ടറി ജനറൽ അറിഞ്ഞെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്ന് യു എൻ തലവന്റെ വക്താവ് ഫർഹാൻ ഹഖ് പറഞ്ഞു ഐ എൻ എഫ് കരാറിൽ നിന്ന് വാഷിംഗ്ടൺ പിൻമാറുകയാണെന്ന് കഴിഞ്ഞ ശനിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു

ഒട്ടോഗുറോ ആദ്യഘട്ടത്തിൽതന്നെ വൻ ലീഡ് നേടി ബജ്രംഗിന് തിരിച്ചടിക്കാനായില്ല സ്വർണം നേടിയാൽ സുശീൽ കുമാറിനുശേഷം ഈ നേട്ടം കുറിക്കുന്ന ആദ്യ ഇന്തൃൻ താരമാകുമായിരുന്നു ബജ്രംഗ്

ഹോങ്കോങ്ങിനെയും മകാവുവിനെയും ബന്ധിപ്പിക്കുന്ന പാലം സുഹായ് നഗരത്തിലൂടെയാണ് കടന്നുപോകുക